ഉച്ചകോടി വൻ വിജയമെന്ന് പ്രധാനമന്ത്രി

ജമ്മുകശ്മീരിലും ഹിമാചൽ പ്രദേശിലും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധൃതയെന്ന് മുന്നറിയിപ്പ്

മണ്ഡല ഉത്സവത്തിനായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി

മായങ്ക് അഗർവാളിന് ഇരട്ട സെഞ്ചറി

വ്യാപാരം നൂതന സാങ്കേതികവിദ്യ സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ബ്രിക്സ് രാഷ്ട്ര നേതാക്കൾ തമ്മിൽ കാര്യക്ഷമമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം ട്വീറ്റിലൂടെ വ്യക്തമാക്കി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ അദ്ദേഹം മടങ്ങിയെത്തി കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

എല്ലാ അയൽരാജ്യങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാകുമെന്നും മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം നൽകിയ ട്ടീറ്റിൽ പറയുന്നു സാമ്പത്തിക സഹകരണത്തിന്റെ പ്രാധാന്യമാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് ആഗോള വികസനം ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക കൂട്ടായ്മകൾക്ക് ഇന്ത്യയുടെ പൂർണ്ണപിന്തുണ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ബ്രിക്സ് രാജ്യങ്ങൾ രൂപീകരിച്ച ന്യൂ ഡെവലപ്പ്മെന്റ് ബാങ്കിന്റെ മേഖലാ കേന്ദ്രം ഇന്ത്യയിൽ ആരംഭിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

അന്താരാഷ്ട്ര ആരോഗ്യ സുരക്ഷാ പദ്ധതികളിലും ബ്രിക്സിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയും ആരോഗ്യ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ഒരു ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി ബ്രിക്സ് വാണിജ്യ സമിതി പരിശോധിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിൽ അംഗരാജ്യങ്ങൾ അവലംബിച്ച നൂതന പരിഷ്കരണങ്ങൾ പരസ്പരം കൈമാറുകയാണെങ്കിൽ കാർഷിക മേഖലയുടെ ഉന്നതിക്കും ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും അത് കൂടുതൽ സഹായകരമായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ്ഡെസ്ക് ആകാശവാണി

വനത്തിൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് നിയമ ഭേദഗതി ദോഷം ചെയ്യുമെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമഭേദഗതി നീക്കം പിൻവലിക്കുന്നത് ആദിവാസികൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കും ഒപ്പമാണ് കേന്ദ്ര ഗവൺമെന്റെന്നും മന്ത്രി ജാവദേക്കർ പറഞ്ഞു

മുന്നറിയിപ്പിനെ തുടർന്ന് ശ്രീനഗർ ജമ്മു ശ്രീനഗർ ലേ മുഗൾ റോഡ് ദേശീയ ്പാതകൾ അടച്ചു

താഴ്വരയിലെ മിക്ക ഇടങ്ങളിലും ഇന്നലെ രാത്രി കനത്ത മഞ്ഞു വീഴ്ചയാണ് രേഖപ്പെടുത്തിയത്

ഇതിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചുചേർത്ത സർവ്വകക്ഷി യോഗം നാളെ നടക്കും സഭയൂടെ സുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടേയും പിന്തുണ്ട് തേടുന്നതായി സ്പീക്കർ അറിയിച്ചു രാജ്യസഭാ ചെയർമാൻ എം പ്പെങ്കിയ്യ നായിഡു വിവിധ പാർട്ടികളുടെ നേതാക്കളുമായി ഞായറിഴ്ച്ച കൂടിക്കാഴ്ച നടത്തും

എഫ്

രാജ്യത്തിനുവേണ്ടി ജീവൻ ബലികഴിച്ച സി

എഫ്

എഫ് ജവാന്മാരുടെ ധീരതയിൽ രാജ്യം അഭിമാനിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ജവാന്മാരുടെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം അഭിവാദ്യം ചെയ്തു

ഡൽഹിയിൽ ഏർപ്പെടുത്തിയ വാഹന നിയന്ത്രണങ്ങളിൽ നിന്ന് ഇരു ചക്രവാഹനങ്ങളേയും മുച്ചക്രവാഹനങ്ങളേയും ഒഴിവാക്കിയതും സുപ്രീംകോടതി ചോദ്യം ചെയ്തു

ഡൽഹിക്ക് സമീപമുള്ള സംസ്ഥാനങ്ങളിലെ കൃഷി ഇടങ്ങൾക്ക് തീയിടുന്ന രീതി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കടുത്ത മലിനീകരണത്തെ തുടർന്ന് നവംബർ നാല് മുതലാണ് വാഹനങ്ങൾക്ക് ഒറ്റയക്ക ഇരട്ടയക്ക നിയന്ത്രണം ഡൽഹിയിൽ ഏർപ്പെടുത്തിയത്

ജെ

വിമാന ഇടപാടിൽ അഴിമതി നട്ടന്നീട്ടില്ല എന്ന് കോടതി വിധിയോടെ വ്യക്തമായിരിക്കുകയാണ് വിഷയത്തിൽ ഈ രാഹുൽ ഗാന്ധി നടത്തിയ പ്രചരണങ്ങൾ രാജ്യ താൽപ്പര്യത്തിന് എതിരായിരുന്നുവെന്നും ബ്ലി

ആരോപിച്ചു

ശിവകുമാറിന് ഡൽഹി ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി ജസ്റ്റിസുമാരായ ആർ

നരിമാൻ എസ് രവീന്ദ്ര ഭട്ട് എന്നിവരടങ്ങിയ ബഞ്ചാണ് ഉത്തരവിട്ടത്

ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി വി

വാസുദേവൻ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറക്കും ശബരിമലയിലെ പുതിയ മേൽശാന്തിയായി എ

സുധീർ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാ ന്തിയായി എം

ഇബ്രാഹിംകുഞ്ഞും മുൻ പൊതുമരാമത്ത് സെക്രട്ടറി റ്റി ഒ സൂരജും വെളുപ്പിച്ചെടുത്തെന്ന് പരാതിയിൽ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേൾം നൽകി പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുമായി ബ്രഡ്പ്പെട്ട് ലഭിച്ച പണമാണിതെന്ന് കളമശ്ശേരി സ്വദേശി സമർപ്പിച്ചു സ്വകാര്യ ഹർജിയിന്മേലാണ് ഹൈക്കോടതി നിർദ്ദേശം ഡയറക്ടറേറ്റിനെ കേസിൽ കുക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു ്ഹർജിയിൽ പ്പറയുന്നപോലെ ഇക്കാലയളവിൽ തുക ഒരു പത്രത്തിന്റെ അക്കൌണ്ടിൽ എത്തിയതായി വിജിലൻസ് കോടതിയെ അറിയിച്ചു കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും

അഞ്ചാം സീഡായ ചൈനയുടെ ചെൻ ലോംഗിനെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത് ആദ്യ ഗെയിം നേടി മുന്നിട്ടു നിൽക്കുമ്പോൾ പരിക്ക് മൂലം ചെൻ ലോംഗ് പിന്മാറുകയായിരുന്നു